പൂർണ്ണമായും നിയമ നിർമ്മാണത്തിനായി മാറ്റിവയ്ക്കുന്നതായിരിക്കും പതിമൂന്നാം സമ്മേളനമെന്ന് സ്പീക്കർ പി

സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ നാളെ സഭാംഗമായിരുന്ന പി ബി അബ്ദുൾ റസാക്കിന്റെ നിര്യാണത്തിൽ ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയും